എറണാകുളം മഹാരാജാസ് കോളെജ് വിദ്യാർത്ഥി അഭിമന്യൂവിനെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗവ

ൾ ൽ ൾ ക്രിമിനൽ കേസുകളിൽ കുറ്റം ചുമത്തിയവരെ തെരഞ്ഞെടു പ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗൃരാക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വത്കരണം അവസാനിപ്പിക്കുന്നതിന് ക്രിമിനൽ കേസ് പ്രതികളെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കണമെന്ന ഹർജികൾ തീർപ്പാക്കിയാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി ക്രിമിനൽ കേസ് അയോഗൃത യല്ലെന്നും ചീഫ് ജസ്റ്റിസ് ദീപക്മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി പുറപ്പെടുവിച്ച ഉത്തരവിൽ വൃക്ത്മാക്കി എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കും മുമ്പ് അവരുടെ ക്രിമിനൽ കേസുകൾ സ്ംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു സ്ഥാനാർത്ഥികളുടെ മുൻകാല ൂചെയ്തികൾ അറിയാൻ പൌരന്മാർക്ക് അവകാശമുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വെബ് സൈറ്റുകളിൽ നൽകണം അവരുടെ പൂർവ്വകാല ചെയ്തികൾ ഇലക്ട്രോണിക് അച്ചടി മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കണ മെന്നും കോടതി പറഞ്ഞു രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വത്കരണം ഇല്ലാതാക്കാൻ നിയമ നിർമ്മാണം നടത്തുന്ന കാര്യം പാർലമെന്റ് പരിഗണിക്കണം രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വത്കരണം ജനാധിപത്യത്തെ അസ്ഥിരപ്പെടു ത്തുന്നുണ്ടെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു എം പി മാരും എം എൽ എമാരും എം എൽ സിമാരും അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നത് വിലക്കണമെന്ന ഹർജി സൂപ്രീംകോടതി തള്ളി ജനപ്രതിനിധികൾ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നത് ബാർ കൌൺസിൽ നിയമം നിരോധിക്കുന്നില്ലെന്ന് കാണിച്ചാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത് നിയമസഭയിലും പാർലമെന്റിലും അംഗങ്ങളാ യിരിക്കുന്നു സമയത്ത് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നിരോധിക്കണ മെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവും അഭിഭാഷകനുമായ അശിനി ഉപാധ്യായയാണ് സുപ്രീംകോടതിയിൽ പൊതു താത്പര്യ ഹർജി നൽകിയത് പ്രളയക്കെടുതി നേരിട്ട കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും

സംസ്ഥാനത്തെ പ്രളയ നാശനഷ്ടം വിലയിരുത്തിയ ലോക ബാങ്ക് എഡിബി സംഘത്തിന്റെ റിപ്പോർട്ടും അദ്ദേഹം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ്ങ് നിതിൻ ഗഡ്ഗരി സുരേഷ് പ്രഭു എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച്ചക്ക് സമയം ചോദിച്ചിട്ടുണ്ട് നാളത്തെ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തും എറണാകുളം മഹാരാജാസ് കോളെജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് പൊലീസ് കുറ്റപത്രം നല്കിയത്

ക്യാമ്പസ് ഫ്രണ്ട് യൂണിറ്റ് സെക്രട്ടറി ജെ ഐ മുഹമ്മദ് ഒന്നാം പ്രതിയും ക്യാമ്പസ് ഫ്രണ്ട് എറണാകുളം ജില്ലാ പ്രസിഡണ്ട് ആരിഫ് ബിൻ സലീം രണ്ടാം പ്രതിയുമാണ് അഭിമന്യുവിനെ കുത്തിയത് മരട് സ്വദേശി മുഹമ്മദ് സഹലാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു

ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അഭിമന്യുവിനെ കൊലപ്പെടു ത്തുന്നതിന് സഹായിച്ചവർക്കെതിരെ ്രുഅനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പൊലീസ് അറിയിച്ചു

അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗവ

മുഖ്യമന്ത്രിയും ചലച്ചിത്ര അക്കാദമി പ്രതിനിധികളും തമ്മിൽ തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ചെലവ് ചുരുക്കി അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കാമെന്ന അക്കാദമിയുടെ നിർദേശങ്ങൾ മുഖ്യമന്ത്രി അംഗീകരിച്ചു മേളയ്ക്ക് ആവശ്യമായ പണം അക്കാദമി സ്വന്തമായി കണ്ടെത്തണം ടെലിഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കാനും ഫീ വർധിപ്പിച്ച് ആവശൃമായ തുക കണ്ടെത്താനും തീരുമാനിച്ചിട്ടുണ്ട് സ്പോൺസർമാരുടെ സഹായം തേടുന്നതുൾപ്പെടെ കാര്യങ്ങൾ മറ്റുന്നാൾ മന്ത്രി എ കെ ബാലനുമായി ചലച്ചിത്ര അക്കാദമി ഭാഹവാഹികൾ ചർച്ച ചെയ്യും പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ചലച്ചിത്രമേള വേണ്ടെന്ന് വെയ്ക്കാൻ ഗവ നേരത്തെ തീരുമാന്ദിച്ചിരുന്നു പ്രമുഖ വയലിനിസ്റ്റ് ബാലഭാസ്കറിന് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ ബാലഭാസ്കറിന്റ മകൾ രണ്ടു വയസ്സുകാരി തേജസി ബാല മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ബാലഭാസ്കറിനെയും ഭാരൃ ലക്ഷ്മിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളെജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു കാർ ഡ്രൈവർ അർജ്ജുനും അപകടത്തിൽ പരിക്കേറ്റു

തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിൽ ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണംവിട്ട് മരത്തിലിടിച്ചാണ് അപകടമു ണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രഥമിക നിഗമനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെ ജില്ലാതല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ സംസ്ഥാനത്ത് നാല് മേഖലകളിലായി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും മന്ത്രി പ്രൊഫ

നാളെ കോട്ടയത്തും മറ്റന്നാൾ തിരുവനന്തപുരത്തും യോഗം നടക്കും മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വെള്ളിയാഴ്ച ഷൊർണൂരിൽ ചേരും കാസർക്കോട് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലെ ഉദ്യോസ്ഥരുടെ യോഗ്ം അടുത്തമാസം നാലിന് കോഴിക്കാട്ടാണ് ചേരുന്നത്

നാലു ദിവസത്തെ ചാമ്പ്യൻഷിപ്പ് ഒഡീഷ ഗവൺമെന്റിന്റെ സ്പോർട്സ് യുവജന ക്ഷേമ ്വകുപ്പാണ് സംഘടിപ്പിക്കുന്നത്

റെയിൽവേസാണ് നിലവിൽ ചാമ്പ്യൻമാർ

സൂപ്പർ ഫോറിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും അഫ്ഗാനിസ്ഥാൻ തോറ്റിരുന്നു

ഗോൾ കീപ്പർ നീരജ് കുമാറിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് സമനില നൽകിയത്

വ്യാഴാഴ്ച നടക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്തോനേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളികൾ

ഗ്രാമീണ കലാകാർൻമാരുടെയും കരകൌശല വിദഗ്ധരുടെയും പ്രാദേശിക നൈപൂണ്യം ശക്തിപ്പെടുത്തുക ഇടനിലക്കാരുടെ അനിയന്ത്രിത ചൂഷണം ഒഴിവാക്കുക കരകൌശല കലാകാരന്മാരുടെ സാമൂഹിക സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് തെരഞ്ഞെടുത്ത ഗ്രാമങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട കരകൌശല പരിശീലനം ലഭൃമാക്കാൻ ഉൌരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തി അസംസ്കൃത വസ്തുക്കളുടെ ലഭൃതക്കുറവുകാരണം തൊഴിൽ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന കുംഭാരന്മാർക്ക് ആശ്വാസമാണ് പൈതൃകഗ്രാമം പദ്ധതി

പ്രളയബാധിത പ്രദേശങ്ങളിലെ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യ ത്തോടെ പാലക്കാട് ജില്ലയിൽ യൂണിസെഫ് സംഘടി പ്പിക്കുന്ന പരിപാടികളുടെ ചർച്ചായോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ ജില്ലയിൽ ഡിസംബർ വരെ യൂണിസെഫ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും

സംസ്ഥാനത്തുണ്ടായ കാലവർഷക്കെടുതി കളുടെ പശ്ചാത്തലത്തിൽ സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ വിവരശേഖരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ പരിസ്ഥിതി പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും സമിതി തെളിവെടുക്കും ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളും പ്രളയബാധിത പ്രദേശങ്ങളും സന്ദർശിക്കും

തുടർന്ന് പോത്തുണ്ടി ഡാം മലമ്പുഴ അകത്തേത്തറ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കും പട്ടികജാതി പട്ടിക വർഗ്ഗ വികസന വകുപ്പുകൾ ചേർന്ന് സം ഘടിപ്പിക്കുന്ന സാമൂഹൃ ഐകൃദാർഡൃ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അടുത്തമാസം രണ്ടിന് കണ്ണൂരിൽ നട ത്തും ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരിക്കും പക്ഷാചരണം നട ത്തുക